മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും നാളെ അറിയാം

സി

ഐ പ്രസിഡന്റായി സൌരവ് ഗാംഗുലി ചുമതലയേറ്റു അഴിമതി രഹിത ഭരണം കാഴ്ചവെയ്ക്കുമെന്ന് ഗാംഗുലി

അൻസാർ ഗസ്വാദ് അൽ ഹിന്ദ് എന്ന ഭീകരസംഘടനയുടെ സ്ഥാപകനായ സാകിർ മൂസയുടെ പിൻഗാമിയാണ് ഇയാളെന്നും പൊലീസ് അറിയിച്ചു അൽ ഖയ്ദയുമായി ബന്ധമുള്ള ഭീകര സംഘടനയാണ് എ

സാകിർ മൂസ ഈ വർഷം കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ലെൽഹാരി ഭീകരസംഘടനയുടെ നേതൃത്വം ഏറ്റെടുത്തതെന്നും പൊലീസ്റ്റ്അറിയിച്ചു അൻസാർ ഗസ്വാദ് അൽ ഹിന്ദിനെ കാശ്മീരിൽ നിന്നും തുടച്ചു നീക്കിയതായും പൊലീസ് മേധാവീ അറിയിച്ചു

കുപ്രസിദ്ധ ഹിസ്ബുൾ ഭീകരൻ ജഹാംഗീർ സരൂരിയുടെ സഹോദരനാണ് അറസ്റ്റിലായ ഒരാൾ

പയറുവർഗ്ഗങ്ങളുടേയും കടുകെണ്ണയുടേയും സൂര്യകാന്തി എണ്ണയുടേയും ബാർലിയുടേയും കുറഞ്ഞ താങ്ങൂവിലയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്

രണ്ട് കമ്പനികളും അടച്ചു പൂട്ടാനോ ഓഹരി വിറ്റഴിക്കാനോ ഉദ്ദേശൃമില്ലെന്നും കേന്ദ്ര ഗവൺമെന്റ് വൃക്തമാക്കി

എൻ എൽ ഉം ലയിപ്പിക്കാനുള്ള പദ്ധതിക്ക് മന്ത്രിസഭ തത്വത്തിൽ അംഗീകാരം നൽകിയതായി കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി രവിശങ്കൾ പ്രസാദ് മാധ്യമങ്ങളെ അറിയിച്ചു

ഈ കോളനികളിലെ താമസക്കാർക്ക് ഉടമസ്ഥാ്വകാശം അനുവദിക്കുന്ന തരത്തിലാണ് ക്രമവൽക്കരണം സാധൃമാക്കിയിട്ടുള്ളതെന്ന് കേന്ദ്ര നഗരകാരൃ മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു ന്യൂഡൽഹിയിൽ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനങ്ങൾ മാധൃമപ്രവർത്തകരോട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം

ചണ്ഡീഗഡ് ആസ്ഥാനമാക്കി വെസ്റ്റേൺ കമാൻഡും ഗുവാഹത്തി ആസ്ഥാനമാക്കി ഇസ്റ്റേൺ കമാൻഡുമാണ് രൂപീകരിക്കുക

കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത്

കേരളത്തിലെ വട്ടിയൂർകാവ് കോന്നി അരൂർ എറണാകുളം മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണലും ഇതിലുൾപ്പെടുന്നു

അറബിക്കടലിലും ആന്ധ്രാ തീരത്തിനടുത്തും രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് മഴയ്ക്ക് കാരണമായതെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു വരുന്ന രണ്ട് ദിവസം മഴയിൽ താരതമ്യേന കുറവുണ്ടാകുമെങ്കിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധൃതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു

ഹിമപ്പുലികളുടെ പരിപാലനവും ഹിമാലയത്തിന്റെ വനൃസമ്പത്തും കാത്തു സൂക്ഷിക്കുന്നതിനാണ് ദിനാചരണം പ്രാമുഖൃം നൽകുന്നത് വരും വർഷങ്ങളിൽ ഹിമപ്പുലികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് ലോകരാജ്യങ്ങൾ മുൻകൈ എടുക്കണമെന്ന് ശ്രീ ജാവ്ദേക്കർ പറഞ്ഞു

ഗോൾഡ് ചാനലിലും മറ്റ് ഫ്രീക്വൻസികളിലും പ്രക്ഷേപണം ലഭ്യമാകും

ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം ഉച്ചകോടിയിൽ സംബന്ധിക്കും

ചേരിചേരാ പ്രസ്ഥാനത്തിലെ ഇന്തൃയിലെ ഇടപെടൽ ശക്തമാക്കാനും അംഗരാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനും ഉപരാഷ്ട്രപതി എം

ഉച്ചകോടിയോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി അസർബൈജാൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും

സി

ഐ വാർഷിക യോഗത്തിലാണ് ശ്രീ ഗാംഗുലി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്

സി സി ഐ

കേന്ദ്രമന്ത്രി അമിത് ഷായുടെ മകൻ ജെയ് ഷാ ബി സി

ഐ

അരുൺ ധുമാൽ ട്രഷററായും മലയാളിയായ ജയേഷ് ജോർജ്ജ് ജോയിന്റ് സെക്രട്ടറിയായും ചുമതലയേറ്റെടുത്തു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നയിച്ചിരുന്ന പോലെ ബി

ഐ യ്ക്കും നേതൃത്വം നൽകുമെന്ന് ശ്രീ

അഴിമതി രഹിത ഭരണത്തിന് പ്രാധാനൃം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു

എൻഫോഴ്സ്മെന്റ ഡയറക്ടറേറ്റാണ് കേസിൽ ശിവകുമാറിനെ അറസ്റ്റ് ചെയ്തത്

എക്സ് മീഡിയ കള്ളപ്പണക്കേസിൽ ജാമ്യം തേടി മുൻ ധനമന്ത്രി പി

ബി ഐ കേസിൽ ഇന്നലെ സുപ്രീം കോടതി ചിദംബരത്തിന് ജാമൃം അനുവദിച്ചിരുന്നു

ബി

വിമത കോൺഗ്രസ് എം എൽ

ഇതുവരെ തുർക്കിയിലെ ഇന്തൃക്കാർക്ക് അപകടങ്ങൾ സംഭവിച്ചതായി വിവരമില്ലെങ്കിലും യാത്രക്കാർ ശ്രദ്ധ പുലർത്തണമെന്ന് തുർക്കിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു